സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നത് യാഥാർത്ഥ്യമായതായി പ്രധാനമന്ത്രി

മുൻപ്രധാനമന്ത്രി എ

വാജ്പേയുടെ ജന്മവാർഷികത്തിൽ രാഷ്ട്രത്തിന്റെ ശ്രദ്ധാജ്ഞലി

തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷം

ഇന്ത്യാ ഓസ്ട്രേലിയ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ മെൽബണിൽ

എ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി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 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലമായ ബോഗിബീൽ രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

നിരവധി പുതിയ പദ്ധതികൾ ആരംഭിക്കാനും നിർണ്ണായക പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും എൻ ഡി എ ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിലാണ് രണ്ടു തട്ടുകളായുള്ള പാലം നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ തട്ടിൽ ഇരട്ട റയിൽപാതയും മുകളിൽ മൂന്ന് വരി റോഡുമാണുള്ളത് ഭാരംകൂടിയ സൈനിക ടാങ്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകാനുള്ള കരുത്ത് പാലത്തിനുണ്ട് ആസാം അരുണാചൽപ്രദേശ് സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ മേഖലയിലൂടെ ബ്രഹ്മപുത്ര നദിയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളെ ബന്ധിപ്പിച്ച് കൊണ്ട് കടന്നു പോകുന്ന ബോഗിബീൽ പാലം വടക്ക് കിഴക്കൻ മേഖലയുടെ വികസന കാര്യങ്ങളിൽ ഒരു നാഴിക കല്ലായി മാറും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപ്പ്രാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേട്രി മോദി തുടങ്ങിയവർ ജന്മദിനത്തിൽ വാജ്പേയിയ്ക്ക് ശ്ര്ദ്ധാജ്ഞലി അർപ്പിച്ചു യഥാർത്ഥ ഭാരതീയനായിരുന്നു വാജ്പേയെന്നും രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം എന്നും നിലനിൽക്കുമെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു വാജ്പേയ് രാഷ്ട്രത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾക്ക് രാഷ്ട്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി എം

ഉപരാഷ്ട്രപതി രാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ വാജ്പേയുടെ സമാധിയിൽ രാവിലെ പുഷ്പാർജ്ജന നടത്തി

മുഹമ്മദ് അഗ്ബർ ഉമേഷ് പട്ടേൽ അനില ഭേദിയ രവീന്ദ്ര ചൌബെ എന്നീ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ചുമതലയേറ്റത്

ഭൂപേഷ് ഭാഗേൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായി സ്ഥത്യപ്രതിജ്ഞ ചെയ്തത്

ഇതുസംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഗവൺമെന്റിന്റെ പരിഗണനിയില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു

ഈ പശ്ചാത്തലത്തിലാണ് നിലവിലെ പ്രായപരിധിയിൽ മാറ്റങ്ങൾ വരുത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയത്

ക്രിസ്തു പിറവിയെടുത്ത ബത്ലഹേമിലെ പുണ്യഭൂമിയിൽ നടന്ന ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഒത്തുച്ചേർന്നു

വികസിതരാജ്യങ്ങളിലുള്ളവർ യാന്ത്രികജീവിതത്തിൽ നിന്നകന്ന് ലളിത ജീവിതം നയിക്കണമെന്ന് പോപ്പ് സന്ദേശം നൽകി ദൈവപുത്രന്റെ കാലിത്തൊഴിത്തിലെ ജനനം ലാളിത്യമാണ് നമുക്ക് കാട്ടിത്തരുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാകുർബാനയിലും തിരുകർമ്മങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു

നാഗാലാന്റിൽ പുലർച്ചെ മുതൽ തന്നെ ദേവായലങ്ങളിലേക്ക് വിശ്വാസികളുടെ അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു

സംസ്ഥാനത്തിന്റെ വിവിധഭാഗങ്ങളിലും തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക ചടങ്ങുകൾ നടന്നു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ബിഷപ്പ് വർഗ്ഗീസ് ചക്കാലക്കലും കണ്ണൂർ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോ അലക്സ് വടക്കുംതലയും തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ബസേലിയസ് ക്ലിമിസ് കത്തോലിക്ക ബാവയും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോ

രാജ്യത്ത് ആദ്യമായി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരിൽ നിന്ന് മോചിതമായ പ്രദേശങ്ങളിലെ വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു

രക്ഷാദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വിശദാംശങ്ങളുമായി സുലൈമാൻ

മീ തീരമേഖലയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനും മൃതദേഹങ്ങൾ നീക്കം ചെയ്യുന്നതിനുമുള്ള ശ്രമം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ് ശക്തമായ തിരകൾ അടങ്ങാത്തതിനാൽ ജാഗ്രതാ നിർദ്ദേശം നാളെവരെ നീട്ടിയിട്ടുണ്ട്

ശനിയാഴ്ച രാത്രിയാണ് തെക്കൻ സുമാത്രയ്ക്കും പശ്ചിമ ജാവയ്ക്കുമിടയിലെ തീരമേഖലയിൽ സുനാമി ആഞ്ഞടിച്ചത് സുൺണ കടലിടുക്കിലെ അനക് ക്രാക്കട്ടോവ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള സ്ഫോടനം മൂലമുണ്ടായ സമുദ്രാന്തര മണ്ണിടിച്ചിൽ പ്രതിഭാസമാണ് സുനാമിയുണ്ടായതെന്നാണ് നിഗമനം

സൈനൃവും ഗവൺമെന്റ് സംവിധാനങ്ങളും കൂടാതെ സന്നദ്ധ പ്രവർത്തകരുമാണ് ദുരന്ത രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സുനാമി ബാധികപ്രദേശങ്ങളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ പ്പിദ്യോഡോ ഇന്നലെ സന്ദർശനം നടത്തി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

കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ പേരും തദ്ദേശവാസികൾ ആണ്

നാല് കളികളുള്ള പരമ്പരയിൽ ഇരുടീമുകളും ഓരോ ജയം നേടി തുലൂ സ്റ്റീലയിലാണ്

കൃഷ്ണപുരയിലെ മിഡ്വൈഫ് എന്നാണ് അവർ അറിയിപ്പെട്ടിരുന്നത് വിദൂര ഗ്രാമത്തിൽ സുരക്ഷിതമായ പ്രസവങ്ങൾ നടക്കുന്നതിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ വർഷം രാജൃം അവരെ പത്മശ്രീ നൽകി ആദരിച്ചത്

സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ഭക്തരെ ഘട്ടം ഘട്ടമായാണ് പമ്പയിൽ നിന്നും കയറ്റിവിടുന്നത് ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട തങ്ക അങ്കി ഘോഷയാത്ര ഇന്ന് പെരുനാട് ക്ഷേത്രത്തിലെത്തും നാളെ ഘോഷയാത്ര പമ്പയിലെത്തും വൈകിട്ട് തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടത്തും മറ്റെന്നാൾ ഉച്ചയ്ക്കാണ് മണ്ഡല പൂജ

പൃഞ്ചാബ് ്രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിൽ ശീതക്കാറ്റ് തുടര്മാനും മധ്യപ്രദേശ് ചത്തീസ്ഗഢ് സൌരാഷ്ട്ര ക്ച്ച് എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യിക്ക്യു്ണ്ട്